പരസ്യ പ്രചാരണം മറ്റന്നാൾ സമാപിക്കും

മുരളീധരൻ

ആർ അംബേ ദ്കർക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി യേശു ക്രിസ്തുവിന്റെ ജറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന തിരുനാൾ ആചരിക്കുന്നു

ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങി

മറ്റന്നാൾ വൈകിട്ട് പരസ്യ പ്രചാരണം സമാ പിക്കും

ശബരിമലയുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൽ വാസ്തവമില്ല അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ആരു തെറ്റ് ചെയ്താലും നടപടി സ്വീകരിക്കും ശബരിമലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് തെര ഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ പേരിലല്ല ബിജെപി വോട്ട ഭ്യർത്ഥിക്കുന്നതെന്ന് പാർട്ടി നേതാവ് വി മുരളീധരൻ പറഞ്ഞു ശബ രിമലയിൽ ഗവൺമെന്റ് നടത്തിയ അതിക്രമങ്ങൾക്കെതിരെയാണ് തെരഞ്ഞെടുപ്പിൽ ശബ്ദമുയർത്തുന്നത് വിശ്വാസങ്ങളും ആചാര ങ്ങളും തകർക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് തുറന്നു കാണിക്കുന്ന തെന്നും മുരളീധരൻ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ലോക്സഭാ ് തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമല്ലെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറ ഞ്ഞു ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയാണ് തീരുമാന മെടുക്കേണ്ടത് ആ തീരുമാനം എന്തുതന്നെ ആയാലും അത് തെര ഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് മീറ്റ് ദി പ്രസിൽ പറഞ്ഞു ശബരിമലയുടെ പേരുപറഞ്ഞ് ബിജെപി യും ആർഎസ്എസും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്

യഥാർഥ സ്നേഹമു ണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയെ സമരഭൂമിയാക്കി മാറ്റാൻ അ വർ ശ്രമിക്കില്ലായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രചാരണത്തിൽ പാളിച്ച സംഭവിച്ചുവെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് വ്യക്തമാക്കി പ്രചാരണ പ്രവർത്തനങ്ങളിൽ യു

എഫ് സ്ഥാനാർത്ഥി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പരാ തിയൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യ മപ്രവർത്തകരോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് മണ്ഡലത്തിൽ എ ഐ

സി നിരീക്ഷകനെ നിയമിച്ചതെന്ന് മുകുൾവാസ്നിക് വ്യക്തമാക്കി സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായി ട്ടില്ലെന്ന് എ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു തിരുവന്തപുരത്ത് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും എ

തലസ്ഥാനത്ത് അഭിമാനപോരാട്ടമാണ് നടക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പൊലീസിനെ സിപിഐഎമ്മിന്റെ അനുകൂല സംഘടനയാക്കി മാറ്റാനാണ് ശ്രമം നടക്കുന്നതെന്ന് കെ

സിസി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

പി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത് പൊലീസ് സേനയ്ക്ക് അപ മാനമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഇത് സംബ ന്ധിച്ച പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയി ട്ടുണ്ട് കൂടുതൽ കേന്ദ്രങ്ങളിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വൃക്തമാക്കി തപാൽവോട്ട് ചെയ്യുന്ന പൊലിസുകാരുടെ വിവരങ്ങൾ ശേഖ രിക്കാൻ ഉത്തരവ് നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്ര കാരമാണെന്ന് ഡി

പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു വിവരങ്ങൾ ശേഖരിക്കാൻ മുമ്പും നോഡൽ ഓഫീസർമാർക്ക് നിർദേശം നൽകി യിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വൃക്തമാക്കി മതേതര കാര്യത്തിൽ പാർട്ടിയുടെ ചരിത്രം തുറന്ന പുസ്തക മാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

ജനങ്ങളെ സാമുദായികമായി തമ്മിലടിപ്പിക്കുന്ന പ്രചാരണം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു വയനാട് മലപ്പുറം ജില്ല കളിലെ വന മേഖലകളിൽ തണ്ടർബോൾട്ടിന്റെയും പൊലീസിന്റെയും നേതൃത്വത്തിൽ പരിശോ ധന തുടരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം എൽ

എഫ് എൻ

എ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയ്ക്ക് നിയോഗിച്ച ജീവനക്കാരുടെ അവ സാനഘട്ട പരിശീലനം ചൊവ്വാഴ്ച നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ കല ക്ടർ അറിയിച്ചു പങ്കെടുക്കാത്തവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയ മപ്രകാരം നടപടിയെടുക്കുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി ആധുനിക ഇന്ത്യക്കായി അക്ഷീണം യത്നിച്ച വ്യക്തിയാണ് ഡോ ബിആർ അംബേദ്കറെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രാ യപ്പെട്ടു രാജ്യത്തെ സ്ത്രീകൾക്കും പിന്നാക്കക്കാർക്കും തുല്യാവ കാശം വേണമെന്ന അദ്ദേഹത്തിന്റെ ആശയം ഏറെ ആദരവർഹി ക്കുന്നതാണെന്നും രാഷ്ട്രപതി പറഞ്ഞു അംബേദ്കർ ജയന്തിയോ ടനുബന്ധിച്ച് തയ്യാറാക്കിയ അനുസ്മരണ കുറിപ്പിലാണ് രാഷ്ട്രപ തി ഇക്കാര്യം വ്യക്തമാക്കിയത്

ആർ അംബേദകർക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി മുംബൈ യിലെ ചൈതൃ ഭൂമിയിലും നാഗ്പൂരിലെ ദീക്ഷാ ഭൂമിയിലും ജന്മ ദിന അനുസ്മരണ പരിപാടികൾ നടന്നു പാർലമെന്റിലെ അംബേ ദ്കർ പ്രതിമക്ക് മുന്നിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പുഷ്പാഞ്ജലി അർപ്പിച്ചു അംബേദ്കർ ജയന്തി പ്രമാണിച്ച് എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപ നങ്ങൾക്കും വൃവസായ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാ പിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ രാജകീയമായ ജറുസലേം പ്രവേശനം അനു സ്മരിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാനത്തിരുനാൾ ആചരിക്കുന്നു വിവിധ പള്ളികളിൽ കുരുത്തോല വെഞ്ചരിപ്പും വിതരണവും പ്രദ ക്ഷിണവും നടന്നു കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദി നാൾ ജോർജ്ജ് മാർ ആലഞ്ചേരിയും കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഫാദർ വർഗ്ഗീസ് ചക്കാലക്കലും ഓശാന ചടങ്ങു കൾക്ക് നേതൃത്വം നൽകി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമി ജീയോസ് ഇഞ്ചനാനിയിൽ കട്ടിപ്പാറ ഹോളിഫാമിലി ചർച്ചിൽ ചട ങ്ങുകൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് സിറ്റി സെന്റ്ജോസ ഫ് ചർച്ചിൽ ഫാദർ ജിജു പള്ളിപ്പറമ്പിലിന്റെയും ഫാദർ കുര്യാ ക്കോസ് ചെന്നേലിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ യേശുക്രിസ്തുവിന്റെ പീഢാനുഭവത്തിന്റെയും കുരിശുമരണത്തി ന്റെയും ഉയിർത്തെഴുന്നേൽപ്പിന്റെയും ദിവ്യസ്മരണപുതുക്കുന്ന വിശുദ്ധവാരാചരണത്തിനും ഇന്ന് തുടക്കമായി

വാരാചര്ണക്കാലത്ത് പള്ളികളിൽ പ്രത്യേക തിരുക്കർമങ്ങൾ നടക്കും

സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയി ലേയ്ക്ക് കടക്കുന്ന നാളാണ് വിഷ്ചു ആഘോഷിക്കുന്നത്

പുത്തനുടുപ്പും വിഷുസദ്യയുമൊരുക്കാ നുള്ള സാധനങ്ങൾ വാങ്ങാൻ മലയോരത്തു നിന്നുപോലും ആളു കൾ കൂട്ടത്തോടെ നഗരവിപണിയിലെത്തി

വിഷു ഉത്സവമായ നാളെപുലർച്ചെ നാലു മുതൽ ശബരിമല സന്നി ധാനത്ത് ഭക്തർക്കായി വിഷുക്കണി ഒരുക്കും കണി കണ്ട് അയ്യപ്പ ദർശനം നടത്തുന്ന ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷു ക്കൈനീട്ടം സമ്മാനിക്കും

പുലർച്ചെ കണി കാണാനെത്തുന്ന വർക്ക് വിഷുക്കൈനീട്ടവും സമ്മാനിക്കും

പയറിനും ബീൻസിനും വില നൂറ് രൂപയിലെത്തി

പ്രളയത്തിന് ശേഷം കേരളത്തിൽ പച്ചക്കറി കൃഷി കുറഞ്ഞതും ഇതര സംസ്ഥാ നങ്ങളിൽ പച്ചക്കറിക്ക് വില കൂടിയതും വിലക്കയറ്റത്തിന് കാര ണമാകുന്നതായി വ്യാപാരികൾ പറയുന്നു വിഷുവും മഹാവീര ജയന്തിയും ദുഖവെള്ളിയും പ്രമാണിച്ച് തി ങ്കൾ ബുധൻ വെളളി ദിവസങ്ങളിൽ കോഴിക്കോട് പാസ്പോർട്ട് ഓഫിസിന് അവധിയായിരിക്കുമെന്ന് റീജ്യനൽ പാസ്പോർട്ട് ഓ ഫിസർ അറിയിച്ചു മലപ്പുറം വെസ്റ്റ്ഹിൽ വടകരകണ്ണൂർ പയ്യ ന്നൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേ ന്ദ്രങ്ങളും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ട്രാഫിക് പൊലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അനധികൃത പാർക്കിങ് കർശനമായി തടയും കാറിൽ ഒരാൾ മാത്രമായി ഇന്ന് നഗരത്തിലേക്ക് വരുന്നത് ഒഴിവാക്കണമെന്ന് പൊലീസ് നിർദേശി ന്നും ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും ഇതിനായി സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ടീം ക്യാപ്റ്റൻ കോച്ച് എന്നിവരുടെ യോഗം നാളെ മുംബൈയിൽ ചേരും

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകീട്ട് നാലിന് കൊൽക്കത്തയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേവ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും രാത്രി എട്ടിന് ഹൈദരാബാദിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും കൊച്ചി ഡെസ്കാത്തോൺ നഗ്നപാദ ഓട്ട മത്സരം ഇന്ന് വൈപ്പി നിലെ പൂപ്പിള്ളി ബീച്ചിൽ നിന്ന് ആരംഭിക്കും ചെറായി ബീച്ച് വരെ യാണ് ഓട്ടം എറണാകുളം ജില്ലാ ടൂറിസം വകുപ്പ് ജില്ലാ ഭരണ കൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള പരിപാടി കൊച്ചി നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ അനിൽകുമാർ ചാവ്ള ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്നലെ അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴു ത്തുകാരനുമായ ഡോ

ബാബുപോളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പെരുമ്പാവൂർ കുറുപ്പംപടി സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും ഉച്ച യോടെ കുറുപ്പംപടിയിൽ പൊതുദർശനത്തിന് വെച്ചശേഷമായി രിക്കും വൈകിട്ട് സംസ്കാരം

നേരിട്ട് സൂര്യപ്ര കാശം ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ എടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകി

സംസ്ഥാനത്ത് ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ പക്ഷികൾക്കാ യി വീട്ടുപരിസരത്ത് കുടിവെള്ള സൌകര്യം ഒരുക്കണമെന്ന് വനം വകുപ്പിന്റെ നിർദേശം കടുത്ത വേനലിൽ പക്ഷികൾ വ്യാപകമാ യി ചത്തൊടുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നിർദേശം